ആത്മവിശ്വാസവും ദൃഢപ്പെടുത്തി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

രൂപത്തിൽ രാജ്യത്തെ ക്സ്ലാ വീടുകളിലും എത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്

എസ് എൽ

എസ് ആർ ഒ

പുതിയതായി ചിന്തിക്കാനും പുതിയ രീതിയിൽ പ്രവർത്തിക്കാനും യൂവാക്കൾ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു

ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെ അറിയുന്നതുപോലെ ൂ നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞരെക്കുറിച്ചും നാം അറിഞ്ഞിരീക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തെ അസ്ത്രിച്ചും ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനയിലൂടെയാണ് രാജ്യത്ത് കൃത്രിയും ശാസ്ത്ര പുരോഗതി സാദ്ധ്യമായതെന്നും ശ്രീ നരേന്ദ്രമോദ്ലി പറഞ്ഞു

ജമ്മു സർവകലാശാലയിൽ ദേശീയ ശാസ്ത്ര ദിനത്തിൽ വിദ്യാഭ്യാസം നൈപുണ്യം തൊഴിൽ എന്നിവയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ ഭാവി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു മന്ത്രി സ്മാർട്ട് സിറ്റി പദ്ധതികൾ കാർഷികരംഗം റിമോട്ട് സെൻസിംഗ് റെയിൽവേ ദുരന്ത നിവാരണം എന്നീ മേഖലകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വൃക്തമാണ് ബഹിരാകാശത്ത് മനുഷ്യനെ അയയ്ക്കുന്നതിന്റെ വക്കിലാണ് രാജ്യം എത്തി നിൽക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി

വെങ്കയ്യനായിഡു വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവദേക്കർ എന്നിവരും അഭിനന്ദനം അറിയിച്ചു

കളിപ്പാട്ട നിർമ്മാണ മേഖലയിലുള്ള സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നിവ മേളയുടെ ലക്ഷൃങ്ങളാണ്

കേരളത്തിൽ നിന്നും മേളയിൽ പങ്കെടുക്കുന്ന സംരംഭക നിഷാ തോമസ് ആകാശവാണി വാർത്തകളോട്

സഞ്ജയ് റ്റാത്തോഡ് രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷമായ ബി ജെ

അമേരിക്കയിൽ അംഗീകാരം ലഭിക്കുന്ന മൂന്നാമത് കോവിസ്ട് വാക്സിനാണിത്

ബാക്കിയുള്ളവ ബാക്ടീരിയ വൈറസ് അലർജി പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവ മൂലവും

അപൂർവ രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രധാനമായും പൊതുജനങ്ങൾ അധികൃതർ നയരൂപ്പീകരണം നടത്തുന്നവർ വൃവസായരംഗത്തെ പ്രതിനിധികൾ പ്രവർത്തകർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഡിജിറ്റൽ സുരക്ഷ നിയമപ്രകാരമാണ് മുഷ്താഖ് അഹമ്മദിനെ അറസ്റ്റ് ചെയ്തിരുന്നത്

മുംബൈ സ്ട്രീറ്റി ഐ ടി കെ മോഹൻ ബഗാൻ മത്സരം പുരോഗമിക്കുന്നു